സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനം അസം അതിർത്തിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു

ഇലക്ട്രിക് വാഹനങ്ങൾ രാജ്യത്ത് വേഗത്തിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം

ഒരുവശത്ത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും മറുവശത്ത് സൈനികരുടെ ധീരതയേയും കഴിവിനെയും ഒപ്പം ഗവൺമെന്റിനേയും സംശയിക്കുകയും ചെയ്യുന്ന നടപടിയാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു മധ്യപ്രദേശിൽ ധാറിൽ വിജയ് സങ്കല്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഉദയകുമാർ

തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കോൺഗ്രസിന്റെ ഭരണകാലത്ത് യാതൊന്നും ചെയ്തിട്ടില്ലെന്നും ശ്രീ

വിജയ് സങ്കല്പ് റാലിയിൽ പങ്കെടുത്തവരിൽ നല്ലൊരു ശതമാനം പേരും ഗിരിവർഗ്ഗു പ്രാതിനിധ്യമുള്ള ധർ രത്ത്ലം ജഹുവ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ബി ജെ

ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി നേരത്തെ വിദ്യാർത്ഥി ഭവന്റേയും ശിക്ഷൻ ഭവന്റേയും ശിലാസ്ഥാപനം അദ്ദേഹം നിർവ്വഹിച്ചു ദൃഢ്ദ്സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ളൂ പ്രധാൻ മന്ത്രി ശ്രം യോഗി മൻധൻ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാന്നമന്ത്രി ഗാന്ധിനഗറിൽ നിർവ്വഹിച്ചു

പുൽവാമയിൽ സി

എഫ് ജവാന്മാർക്ക് നേരെയുണ്ടായത് ആക്രമണമല്ല എന്ന കോൺഗ്രസ് നേതാവ് ദിഗ് വിജയ്സിംഗിന്റെ പ്രസ്താവനയെ ന്യൂഡൽഹിയിൽ ശ്രീ രവിശങ്കർ പ്രസാദ് അപലപിച്ചു ബലാകോട്ട് ആക്രമണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ പ്രതിരോധ സേനയിലുളള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ശ്രീ രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി ഇത്തരം പ്രസ്താവനകൾ പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് കരുത്ത് പകരുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് രാവിലെ ചെന്നൈയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻദ്ധൻ സ്കീം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് ഒരു കണക്കും പുറത്തുവിട്ടിട്ടില്ലെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഉദയകുമാർ

പാകിസ്ഥാനിലെ ഭീകര പ്രിവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുട്ടെ അടിസ്ഥാനത്തിലായിരുന്നു വ്യോമാക്രമണം നടത്തിയ്ത് ആക്രമണത്തിൽ സാധാരണ പൌരന്മാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല ആക്രമണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

പാകിസ്ഥാൻ മണ്ണിൽ തീവ്രവാദികൾക്ക് ലഭിക്കുന്ന സൌകര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഇന്തൃ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു

മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പാകിസ്ഥാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്നും വിദേശകാരൃമന്ത്രി കുറ്റപ്പെടുത്തി

ഭീകരരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സംസ്ഥാനത്തെ ഷോപ്പിയാൻ ജില്ലയിലെ നർവാവ് മേഖലയിൽ സേനയുടെ സംയുക്ത സംഘം ഇന്ന് തെരച്ചിൽ നടത്തിയിരുന്നു ഭീകരരുടെ സാന്നിധൃത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയതെന്ന് സുരക്ഷാസേന വൃത്തങ്ങൾ വ്യക്തമാക്കി

തീവ്രവാദി താവളങ്ങൾ നശിപ്പിക്കുന്നതിനും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറ്റിലുന് പ്രീടികൂടുന്നതിനും പാകിസ്ഥാനു മേൽ പരമാവധി നയതന്ത്ര സ്മ്മ്ർദ്ദം ചെലുത്തുമെന്ന് വിദേശ മന്ത്രാലയം വ്യക്തമാക്കി ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണം ജെയ്ഷെ മൊഹമ്മദ് തീവ്രവാദി ക്യാമ്പിനെതിരെയായിരുന്നു എന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്

അതിർത്തി സുരക്ഷാ സംവിധാനത്തിന് സാങ്കേതിക വിദ്യ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതി

ചീഫ് ജെസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ബഞ്ചാണ് പൊതുതാൽപരൃ ഹർജിയിൻമേൽ തീരുമാനം കൈക്കൊണ്ടത് നാല് ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം തീരുമാനം അറിയിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു

സുബ്രഹ്മണ്യം സംസ്ഥാന പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നട്ടത്തി

ഇതനുസരിച്ച് എം ഡി എം

ക്ക് ഒരു സീറ്റ് നൽകും

എം കെ

പത്തെണ്ണം കോൺഗ്രസിന് നൽകാൻ ധാരണയായിട്ടുണ്ട്

എം

എന്നിവർക്ക് രണ്ട് സീറ്റുകൾ വീതവും നൽകും

മുന്നണിയിൽ രാഷ്ട്രീയ ലോക്ദൾ പാർട്ടിയും ചേർന്നു സമാജ് വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആർ

ഉപാധൃക്ഷൻ ജയന്ത് ചൌധരിയും ലക്നൌവിൽ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാരൃം അറിയിച്ചത്

ബാഗ്പത് മുസ്സാഫർ നഗർ മധുര എന്നീ മണ്ഡലങ്ങളിലായിരിക്കും ആർ

ബംഗളൂരുവിൽ ആദായനികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ടെർമിനൽ അദ്ദേഹം നാടിന് സമർപ്പിക്കും ബംഗളൂരുവിലെ ഇ

ഐ

മെഡിക്കൽ കോളേജുകളും ഹുബ്ബാലിയിലെ കിംസ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകും കർബുർഗിയിലെ ആയുഷ്മാൻ ഭാരതിന്റെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും

ഏഴ് ട്രെയിനുകൾ വഴിതരിച്ചു വിട്ടതായും ഉത്തര റെയിൽവേ പ്രസ്താവനയിൽ വൃക്തമാക്കി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആയിരുന്നു അമൃത്സറിൽ കർഷകരുടെ സമരം

ഏറ്റവും കൂടുതൽ വേഗതയിൽ വളരുന്ന മാധ്യമമാണ് ഡിജിറ്റൽ രംഗത്തെ സമൂഹ മാധ്യമങ്ങൾ ഓരോ പൌരനും രാജ്യത്തിന്റെ സൈനികൻ എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ നടത്തുന്നത് അതിനാൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം അതിർത്തി കടന്നുള്ള തീവ്രവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്തൃയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു